ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ശതമാനത്തിൽ താഴെ തുടരുന്നു

വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനത്തിന്റെ പ്രതിമ ഇന്ന് രാജസ്ഥാനിലെ പാലിയിൽ അനാവരണം ചെയ്യും

ജനക്ഷേമം ഉറപ്പു വരുത്താനും വിദ്യാഭ്യാസം വ്യാപിപ്പിക്കാനും സാമൂഹിക തിന്മകളെ ഉന്മൂലനം ചെയ്യാനും വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം പ്രചോദനാത്മകമായ സാഹിത്യകൃതികൾ എഴുതി സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനും സജീവ പിന്തുണ നൽകി

രുഭ ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും

പട്നയിൽ ഇന്നലെ ചേർന്ന എൻ

എമാരുടെ യോഗം നിതീഷ് കുമാറിനെ ഏകകണ്ഠമായി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു പിന്നീട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സഞ്ജയ് ജയ്സ്വാളിനൊപ്പം ഗവർണറെ കണ്ട അദ്ദേഹം ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശം ഉന്നയിച്ചു

ജെ പി നിയമസഭാ കക്ഷി നേതാവായി തർകിഷോർ പ്രസാദിനെ തെരഞ്ഞെടുത്തു രും ഡൽഹിയിലെ കോവിഡ് സ്ഥിതിയും ആരോഗ്യ മേഖലയിലെ സൌകര്യങ്ങളും ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി

രുമ കോവിഡ് പ്രതിരോധ മുൻകരുതലിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച നിരോധനാജ്ഞ നീട്ടില്ലെന്നും രോഗ പ്രതിരോധത്തിനായി നിയന്ത്രണങ്ങൾ തുടരുമെന്നും കോട്ടയം ജില്ലാ കലക്ടർ എം

നിരോധനാജ്ഞയുടെയും കോവിഡ് പ്രതിരോധ നടപടികളുടെയും നിർവഹണം ഉറപ്പാക്കുന്നതിനായി സെക്ടർ മജിസ്ട്രേറ്റുമാരുടെ നേതൃത്വത്തിൽ നിയോഗിച്ച നിരീക്ഷണ സംഘങ്ങളുടെ പ്രവർത്തന കാലാവധി തീർന്നെങ്കിലും മുൻപ് നിലവിലുണ്ടായിരുന്നതുപോലെ ഇൻസിഡന്റ് കമാൻഡർമാർ രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളുടെ മേൽനോട്ടം നിർവഹിക്കുമെന്നും കലക്ടർ പറഞ്ഞു എല്ലാ കേന്ദ്രങ്ങളിലും നിരീക്ഷണത്തിന് ക്വിക്ക് റെസ്പോൺസ് ടീമുകൾ ഉണ്ടാകും രുര കൊറോണ വൈറസിനെതിരെ പോരാടാൻ നാം തുടരുന്ന കനത്ത ജാഗ്രതയാണ് നമ്മുടെ കരുത്തെന്ന് മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോ

ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധാപൂർവമായ ഇടപെടലുകളും ബോധവത്കരണ ശ്രമങ്ങളുമാണ് കൊവിഡിനെ പ്രതിരോധിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതെന്നും ഡോ

വെർച്വൽ ക്യൂ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്ത് വന്നവരെ പുലർച്ചെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിച്ച് തുടങ്ങി

ശനി ഞായർ ദിവസങ്ങളിൽ രണ്ടായിരം പേർക്ക് വീതം പ്രവേശനം നൽകും

ദര പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം ശബരിമല സന്നിധാനത്ത് ഇന്ന് തന്ത്രി കണ്ഠരര് രാജീവരര് നിർവഹിക്കും പദ്ധതിയുടെ വെബ്സൈറ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡണ്ട് എൻ വാസു ഉദ്ഘാടനം ചെയ്യും

കലക്ടറുടെ മോണിറ്ററിങ് സെൽ എന്ന പേരിൽ രൂപീകരിക്കുന്ന സമിതിയിൽ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കൺവീനറും ജില്ലാ പൊലിസ് മേധാവി ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എന്നിവർ അംഗങ്ങളായിരിക്കും സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയപാർട്ടികൾ പൊതുജനങ്ങൾ എന്നിവരുടെ പരാതി തീർപ്പാക്കൽ സംശയങ്ങൾ തീർക്കൽ എന്നിവയാണ് സമിതിയുടെ ചുമതല രുര തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനും പരാതികൾക്ക് സത്വര പരിഹാരം കാണുന്നതിനുമായി കണ്ണൂരിൽ നിരീക്ഷണ സമിതി രൂപീകരിച്ചു ജില്ലാ കലക്ടർ ചെയർമാനും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കൺവീനറുമായാണ് സമിതി രൂപീകരിച്ചത്

തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുക പരാതികൾ അപേക്ഷകൾ ഫോൺ സന്ദേശങ്ങൾ എന്നിവ രേഖപ്പെടുത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇ മെയിൽ സന്ദേശങ്ങൾ കൃത്യമായി പരിശോധിക്കുക തുടങ്ങിയവയാണ് കൺട്രോൾ റൂമിന്റെ പ്രവർത്തന ചുമതലകൾ രംഭ കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫ് ആദ്യഘട്ട സ്ഥാനാർഥികളെ പ്രഖ്യാപിച്ചു

എല്ലാഘടകകക്ഷികൾക്കും മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് നേതാക്കൾ വ്യക്തമാക്കി രുമ കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ സ്ഥാനാർഥിനിർണയം ഏറെക്കുറെ പൂർത്തിയായി

രും കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി

ഡിവിഷനുകളിൽ വീതം സി

എമ്മും കേരളാ കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും മത്സരിക്കും

ഡി എഫിലും എൻ

എയിലും സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയായിരുന്നു രും സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടർപട്ടികയിൽ ഇന്ന് മുതൽ പേര് ചേർക്കാം

ഡി

കോർപ്പറേഷനുകളിൽ ബൂത്ത് തലത്തിലും പഞ്ചായത്തുകളിൽ വാർഡ് തലത്തിലും വൈകീട്ട് അഞ്ചു മുതൽ ആറു വരെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാവും പരിപാടി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അന്വേഷണങ്ങളുടെ മറവിൽ സംസ്ഥാന ഭരണത്തെ അട്ടിമറിക്കുകയാണെന്നും കേന്ദ്ര ഗവൺമെന്റിന്റേത് ജനദ്രോഹ ഭരണമാണെന്നും ആരോപിച്ചാണ് ജനകീയ കൂട്ടായ്മ

കെരാഘവൻ എം പി പ്രസാർഭാരതി സി

ഓയോട് ആവശ്യപ്പെട്ടു അയൽ സംസ്ഥാനങ്ങളിലെ ആകാശവാണി നിലയങ്ങൾ നൂതന ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലേക്ക് ഇതിനകം മാറിക്കഴിഞ്ഞതായും വടക്കൻ കേരളത്തിന്റെ സംസ്കാരത്തിൽ ഇഴുകിച്ചേർന്ന വളരെയേറെ പ്രാധാന്യമുള്ള കോഴിക്കോട് നിലയം നൂതന സംവിധാനങ്ങളോടെ നിലനിൽക്കേണ്ടത് ഒരു ജനതയുടെ ആവശ്യമാണെന്നും രാഘവൻ പറഞ്ഞു രുര ആദ്യകാല ആക്ഷൻ ഹീറോ ജയനെ മലയാള സിനിമയ്ക്ക് നഷ്ടമായിട്ട് ഇന്ന് നാൽപ്പതാണ്ട്

മഹാനടന്റെ നാൽപതാം ചരമവാർഷികദിനത്തിൽ ജൻമനാടായ കൊല്ലം തേവള്ളിയിൽ അനുസ്മരണ പരിപാടികൾ നടക്കും രമേ സ്വർണക്കടത്തുകേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് ഇന്ന് ചോദ്യം ചെയ്യും

കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ നിന്ന് എൻ ഐ എ കണ്ടെടുത്ത ഒരു കോടി രൂപ ലൈഫ് മിഷൻ പദ്ധതിയിൽ ശിവശങ്കറിന് ലഭിച്ച കോഴയാണെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ടിനെത്തുടർന്നാണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത് തുടർന്ന് സാമ്പത്തിക കുറ്റകൃത്യകേസുകൾ പരിഗണിക്കുന്ന കോടതിയിൽ കസ്റ്റംസ് റിപ്പോർട്ട് സമർപ്പിക്കും രംഭ അത്യാധുനിക താപനില നിയന്ത്രണ കണ്ടെയ്നർ ഉപയോഗിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ആദ്യമായി ചെമ്മീൻ കയറ്റുമതി ചെയ്തു